കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഭീമാ കൊറേഗാവ് സംഭവത്തോട്ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റിൽ ഇടപെടാനാ വില്ലെന്ന് സുപ്രീംകോടതി

എസ് സംവിധാനം നിലവിൽ വരും

പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്ന് സുപ്രീംകോടതിയുടെ ചരിത്രവിധി ശാരീരികാവസ്ഥയുടെ പേരിൽ ആർക്കും മതസ്വാതന്ത്യം നിഷേധിക്കാൻ പാടില്ലെന്ന് ഭരണഘടനാബെഞ്ച് വിധിച്ചു വർഷങ്ങൾ നീണ്ട വിശ്വാസങ്ങളായാലും തിരുത്താവുന്ന തേയുള്ളൂവെന്ന് വിധിന്യായത്തിൽ കോടതി നിരീക്ഷിച്ചു സ്ത്രീകളെ ദൈവമായി ആരാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരോട് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് തരംതാഴ്ത്തലിന് തുല്യമാണെന്നും ഭരണഘടനാബെഞ്ച് വിലയിരുത്തി

ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്ര ജസ്റ്റിസുമാരായ രോഹിൻടൺ നരിമാൻ എ എം ഖൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദുമൽഹോത്ര എന്നിവരടങ്ങിയ ഭരണ ഘടനാബെഞ്ചിൽ ഇന്ദുമൽഹോത്ര മാത്രമാണ് സ്ത്രീപ്രവേശനത്തിനെതിരായ നിലപാട് സ്വീകരിച്ചത് കോടതിവിധിയെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു ദീർഘകാല നിയമപോരാട്ടത്തിലൂടെയാണ് ഏതുപ്രായക്കാരായ സ്ത്രീകൾക്കും പ്രവേശനാനുമതി ലഭ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു ആരാധനാലയങ്ങളിൽ വിവേചനം പാടില്ലെന്ന നിലപാടാണ് ഗവൺമെന്റിന്റേത് സുപ്രീംകോടതിയിൽ ഗവൺമെന്റ് ഇക്കാര്യം വ്യക്തമാക്കി യിരുന്നു സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും സമവായത്തിലൂടെ ഗവൺമെന്റ് അക്കാര്യത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് കടകംപള്ളി അറിയിച്ചു സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സുപ്രീംകോടതി വിധി സുപ്രധാന മാണെന്ന് മന്ത്രി ജി

സ്ത്രീകളുടെ മനുഷ്യാവകാശപരമായ കാഴ്ചപ്പാടോടെ യാണ് സുപ്രീംകോടതി ഉത്തരവുണ്ടായതെന്ന് സുധാകരൻ പറഞ്ഞു സുപ്രീംകോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വിലക്കിയിട്ടില്ലെന്നും ആചാരങ്ങളുടെ പേരിൽ നിയന്ത്രണംഏർപ്പെടുത്തുകയായിരുന്നു വെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കോടതി വിധി വന്നതോടെ സ്ഥിതി മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ ആചാരാനുഷ്ഠാ നങ്ങളുടെ അടിസ്ഥാന ത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണ്ടെന്ന നിലപാടാ യിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് എടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിധി പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു ശബരിമലയിൽ എല്ലാപ്രായത്തിലുംപെട്ട സ്ത്രീകൾ ക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധി നിരാശാജനക മാണെന്ന് ശബരിമല തന്ത്രി കണ്ഠരർ രാജീവരർ അഭിപ്രായപ്പെട്ടു കോടതി വിധിയിൽ പന്തളം രാജകുടുംബാംഗങ്ങളും നിരാശപ്രകടിപ്പിച്ചു കോടതിവിധിയിൽ സന്തോഷമുണ്ടെന്ന് കർണാടക മന്ത്രി ജയമാല അഭിപ്രായപ്പെട്ടു കോടതിഉത്തരവ് ദൈവാനുഗ്രഹ മാണെന്ന് അവർപറഞ്ഞു ജയമാലയുടെ ശബരിമല ദർശനവു മായി ബന്ധപ്പെട്ടാണ് എല്ലാ പ്രായക്കാരായ സ്ത്രീകൾക്കും ശബരിമലയിൽ ദർശനം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായത് സുപ്രീംകോടതി വിധി നിർഭാഗ്യകരമെന്ന് തിരുവിതാംകൂർ ദേവസം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പ്രതികരിച്ചു വിധിക്കെതിരെ പുനപരിശോധനാ ഹർജി നൽകുമെന്ന് അദ്ദേഹം ഒരു സ്വാകാര്യ ചാനലിനോട് പറഞ്ഞു ഭീമാ കൊറേഗാവ് അക്രമസംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് അഞ്ച് മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റുചെയ്ത സംഭവത്തിൽ ഇടപെടാൻ ഭൂരിപക്ഷവിധിയിൽ സുപ്രീംകോടതി വിസമ്മതിച്ചു പ്രതികളെ ഉടൻ വിട്ടയക്കണ മെന്നും അറസ്റ്റിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് റൊമില ഥാപ്പറും പ്രഭാത് പട്നായിക്കും സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര നേതൃത്വം നൽകുന്ന മൂന്നംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ഖാൻവിൽക്കറും സമാന വിധി പ്രഖ്യാപിച്ചപ്പോൾ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വൃത്യസ്ത വിധിയാണ് നൽകിയത് രാഷ്ട്രീയ ഭിന്നതയുടെ പേരിലല്ല ഇവരുടെ അറസ്റ്റെന്ന് ജസ്റ്റിസ് ഖാൻവിൽക്കർ വ്യക്തമാക്കി ഇവർക്ക് നിരോധിത മാവോയിസ്റ്റ് സംഘടനയുമായി ബന്ധമുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാതെളിവു ണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെട്ട കോടതിയിൽ പരിഹാരം തേടാൻ പ്രതികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്

അതേസമയം ചീഫ് ജസ്റ്റിസിന്റെയും ജസ്റ്റിസ് ഖാൻവിൽ ക്കറിന്റെയും വിധിയോട് യോജിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വൃക്തമാക്കി എതിരഭിപ്രായം പറഞ്ഞവരുടെ വായ്മൂടിക്കെട്ടാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് നടത്തിയ ശ്രമമാണ് അറസ്റ്റെന്നും അദ്ദേഹം പറഞ്ഞു ശരിയായ അന്വേഷണം കൂടാതെ അഞ്ച് മനുഷ്യാവകാശ പ്രവർത്തകരെ പീഡിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്യത്തിന് അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിയന്ത്രണരേഖയ്ക്കപ്പുറം ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നലാക്രമണത്തിന്റെ രണ്ടാം വാർഷിക ത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരാക്രം പർവ് പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഉദ്ഘാടനം ചെയ്തു ബാറ്റിൽ ആക്സ് ഗ്രൌണ്ടിൽ എത്തിയ പ്രധാനമന്ത്രി രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി സന്ദർശക പുസ്തകത്തിൽ രേഖപ്പെടുത്തി

രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമനും രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു പ്രളയത്തിനുശേഷം സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച അധിക അരി സൌജന്യമാക്കാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ അറിയിച്ചു ഇതിന്റെ വില കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഈടാക്കു മെന്ന് കെ കെ രാഗേഷ് എം പിയുടെ കത്തിന് നൽകിയ മറുപടിയിൽ പസ്വാൻ വ്യക്തമാക്കി നഗരപ്രദേശങ്ങളുടെ ശുചിത്വ നിലവാരം നിർണയി ക്കുന്നതിന് കേന്ദ്രാവിഷ്കൃത ശുചിത്വപദ്ധതിയായ സൂച്ച് സർവേഷന് സംസ്ഥാനത്ത് തുടക്കമായി ഹരിതകേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോ

എൻ സീമ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മാലിന്യസംസ്കരണ നിലവാരത്തിന്റെ അടിസ്ഥാന ത്തിൽ രാജ്യത്തെ നഗരസഭകളെ വിലയിരുത്തുന്ന പദ്ധതിയാണിത് കേന്ദ്രഗവൺമെന്റ് ചുമതലപ്പെടുത്തു ന്ന സ്വതന്ത്ര ഏജൻസി നാല് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തുക അടുത്ത ജനുവരിയിൽ സർവ്വേ ആരംഭിക്കും

എം നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുര ത്ത് തുടക്കമായി ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തുടർന്ന് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മറ്റിയും ചേരും

കെ ശശി എം

എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും അപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകളിൽ തിങ്കളാഴ്ച മുതൽ ജി

എസ് സംവിധാനം നിലവിൽ വരും

ഇതിനുവേണ്ടി വെഹിക്കിൾ ട്രാക്കിങ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിന് രൂപം നൽകിയിട്ടുണ്ട് വാഹനങ്ങളുടെ അതിവേഗം അപകട സാധ്യതകൾ സംശയകരമായി നിർത്തിയിടുന്നത് ഉൾപ്പെടെ വിവരങ്ങൾ വെഹിക്കിൾ ട്രാക്കിങ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തുന്ന ജി

എസ് സംവിധാന ത്തിലൂടെ അറിയാൻ കഴിയും കേരളം ഉൾപ്പെടെ പ്രളയദുരന്തം നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കൻ പ്രത്യേക സെസ് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ന്യൂഡൽഹിയിൽ ഇന്നുചേരുന്ന ജി

ടി കൌൺസിൽ യോഗം തീരുമാനമെടുത്തേക്കും

സംസ്ഥാന ജി

ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും ദുബായിൽ വൈകിട്ട് അഞ്ചിനാണ് മത്സരം ഏഴാം തവണയും ചാമ്പ്യന്മാരാകാമെന്ന പ്രതീക്ഷയി ലാണ് ഇന്ത്യ മൂന്നാംതവണ ഏഷ്യാകപ്പ് ഫൈനലിലെത്തുന്ന ബംഗ്ലാദേശ് ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് ക്രീസിലിറങ്ങുന്നത് ഭുവനേശ്വറിൽ ദേശീയ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും

രണ്ടുപേർക്ക് ഗ്രന്ഥരചനയ്ക്ക് പുരസ്കാരവും പ്രഖ്യാപിച്ചു കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കീച്ചേരി രാഘവൻ ആണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലാകോടതി കോംപ്ലക്സിന്റെ പുതിയ കെട്ടിടം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ് നാളെ ഉദ്ഘാടനം ചെയ്യും നഗരത്തിൽ പലയിടങ്ങളി ലായി വാടക്കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതടക്കം ആറ് കോടതികൾ ഇതോടെ പുതിയ കോംപ്പക്സിലേക്ക് മാറും

ലോകഹൃദയാരോഗൃ ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ കോഴിക്കോട് കോർപ്പറേഷനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഹൃദയത്തിനുവേണ്ടി ഓട്ടവും നടത്തവും ഡോക്ടർമാർ പങ്കെടുക്കുന്ന ബോധവൽ ക്കരണ പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ വുമാണ് ഹൃദയസംബന്ധമായ അസുഖങ്ങൾ വർധിക്കു ന്നതിന് പ്രധാനകാരണമെന്ന് ഹാർട്ട് കെയർ സൊസൈറ്റി പ്രസിഡണ്ട് ഡോ കെ കുഞ്ഞാലി അഭിപ്രായപ്പെട്ടു കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജ് മലയാളവിഭാഗം സംഘടിപ്പിക്കുന്ന ദേശീയ നാടക ശില്പശാല തുടങ്ങി കണ്ണൂരിലെ പടവ് ക്രിയേറ്റീവ് തിയേറ്റർ ഗ്രൂപ്പാണ് മൂന്നുദിവസത്തെ പരിപാടിയ്ക്ക് നേതൃത്വം നൽകുന്നത് ശില്പശാലയിൽ രൂപപ്പെടുന്ന നാടകങ്ങൾ അവസാനദിവസം അവതരിപ്പി ക്കും

കാർഷിക മാലിന്യ ങ്ങളിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരമാതൃകകൾ സമാഹരിക്കു കയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ ഹിന്ദിപക്ഷാ ചരണത്തിന്റെ സമാപന പരിപാടികൾ ആർക്കിയോളജിസ്റ്റ് കെ

ജീവനക്കാരുടെ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ നിലയം മേധാവി പി എൻ സുധാകരൻ അധ്യക്ഷനായിരുന്നു പ്രളയ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന റീ സർജന്റ് കേരള ലോൺ സ്കീമിന്റെ ഭാഗമായി ഏറ്റവും ഉയർന്ന തുക അനുവദിച്ചത് വയനാട്ടിൽ ഒരു കോടി രൂപയാണ് കനറബാങ്ക് പനമരം ശാഖ വഴി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചത്